പുനർനിർമാണത്തിനുള്ള ധനസമാഹരണത്തിന് വിപുലമായ പദ്ധതി നടപ്പാക്കൂമെന്ന് മുഖ്യമന്ത്രി പ്രവാസികളെ മന്ത്രിമാർ നേരിട്ട് ക്ടാണും

പമ്പയുടെ പുനരുദ്ധാരണത്തിന്റ് അടിയന്തര നടപടി

ഇടുക്കിയിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ നിർമ്മാണ നിയന്ത്രണം ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങി

തപാൽ വകുപ്പിന്റെ ഇന്ത്യാ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പ്രധാനമന്ത്രി ് നരേന്ദ്ര മോദി നാളെ ഉദ്ഘാടനം ചെയ്യും

ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മുന്നേറുന്നു ഇന്ത്യ ജപ്പാൻ വനിതാ ഹോക്കി ഫൈനൽ അല്പസമയത്തിനകം

മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതിനായി സംസ്ഥാനത്തെ മന്ത്രിമാരെ ഒക്ടോബർ മാസം വിവിധ രാജ്യങ്ങളിലേക്ക് അയയ്ക്കും

ഒമാൻ ബഹ്റിൻ സൌദി അറേബ്യ ഖത്തർ കുവൈറ്റ് സിംഗപ്പൂർ മലേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലന്റ് യു കെ ജർമ്മനി യു

എ കാനഡ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രവാസികളിൽ നിന്ന് ധനസമാഹരണം നടത്താനാണ് തീരുമാനം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നും ധനശേഖരണം നടത്തും ഇത്തരം കാരൃങ്ങൾക്കായി മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രത്യേക ചുമതല നല്കും എല്ലാ ജില്ലകളിലും പ്രാദേശിക കേന്ദ്രങ്ങൾ നിശ്ചയിച്ച് മുഖ്യമന്ത്രിയുടെ ദൂരിതാശ്വാസനിധിയിലേക്ക് ഫണ്ട് സമാഹരിക്കും

പുനർനിർമാണം വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതിയെ നിയോഗിച്ചു

വേണു കെ

ജ്യോതിലാൽ ടിങ്കു ബിസ്വാൾ ഡി

ടടടടടട എലിപ്പനി തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിൽ നിന്നും എലിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദേശം പുറപ്പെടുവിച്ചു ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മാർഗനിർദേശങ്ങൾ കൃത്യമായി പാലിച്ച് എലിപ്പനിയുടെ പ്രതിരോധ മരുന്ന് കഴിക്കണം പ്രളയബാധിത പ്രദേശങ്ങളിൽ ഉള്ളവർക്കും വിവിധ ജില്ലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പോയിട്ടുള്ളവർക്കും പനിയോ മറ്റ് രോഗ ലക്ഷണങ്ങളോ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആർട്ടോഗൃ കേന്ദ്രത്തിൽ എത്തി ചികിൽസ തേടണ്ടുമുന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു

അക്കൌണ്ടില്ലാത്തവർ ചൊവ്വാഴ്ച രാവിലെ വൈത്തിരി താലൂക്കിലെ വില്ലേജ് ഓഫീസുകളിൽ പങ്കെടുക്കണം

പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും

സുനിൽകുമാറിന്റെ നേതൃത്വ ത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ ധാര ണയായി

കൃഷിയെ സംബന്ധിച്ച് വിദഗ്ദ്ധ ഉപദേശങ്ങൾ നൽകു ന്നതിന് എല്ലാ ജില്ലകളിലെയും പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളിൽ ഹെൽപ്പ്ഡെസ്കുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്

ഒരുമാസക്കാലത്തേക്കാണ് വിലയിൽ ഇളവ്

പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ വരവോടെഓൺലൈനായോ മൊബൈൽ ആപ്പുവഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ്ഓഫീ സ് സന്ദർശിച്ചോ ഉപഭോക്താക്കൾക്ക് ഏത് ബാങ്ക് അ ക്കൌണ്ടിലേക്കും പണം കൈമാറുന്നതടക്കമുള്ള ഡിജിറ്റൽസേവനങ്ങൾ പ്രയോജനപ്പെടുത്താം വൈദ്യു തി ബിൽ ഡി ടി എച്ച് സേവനങ്ങൾ കേളേജ് ഫീസ് ഫോൺ റീചാർജ്ജ്എന്നിവയും ഇത് വഴി അടക്കാവുന്ന താണ്

കണ്ണിനേറ്റ പരിക്കിനെ തുടർന്നാണ് താരം പിന്മാറിയത്

വിരാട് കോഹ് ലി ചേതേശ്വർ പൂജാര് സഖ്യം തീർത്ത അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് ഇന്ത്യയെ മികച്ച നിലയിലെത്തിച്ചു